ജമ്മുകാശ്മീരിലെ സ്ഥിരതാമസ സർട്ടിഫിക്കറ്റ് നിയമത്തിൽ മാറ്റം ന് വരുത്താൻ യാതൊരു നീക്കവും നടത്തുന്നില്ലെന്ന് ഗവർണ്ണർ സത്യപാൽ മാലിക്

നിയമിച്ച സമിതി ഇന്ന് നിലയ്ക്കലും പമ്പയും സന്ദർശിക്കും

ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്തി മികച്ച സൈനിക രീതികൾ രാജ്യങ്ങൾക്ക് പരിചിതമാക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി

എ

സാമ്പത്തിക സാങ്കേതിക സഹകരണം ലക്ഷ്യമിട്ടുള്ള ഇന്തൃ യു എ

എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് അൽ നഹ്യാനുമായി ശ്രീമതി സുഷമ സ്വരാജ് അബുദാബിയിൽ കൂടിക്കാഴ്ച നടത്തും അബുദാബിയിലെ ഗാന്ധി സയിദ് ഡിജിറ്റൽ മ്യൂസിയം കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും

എ ഇ സ്ഥാപകനായ ഷെയ്ഖ് സയിദിന്റെ നൂറാമത് ജന്മവാർഷികാഘോഷത്തിന്റെയും ഭാഗമായാണ് മ്യൂസിയം ഒരുക്കിയത്

വിവിധ നടപടിക്രമങ്ങൾ കാരണം പലരും സർട്ടിഫിക്കറ്റ് നേടാൻ ബുദ്ധിമുട്ടുന്നുണ്ടെന്നും ഇത് ഒഴിവാക്കാൻ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടുമെന്നും ഗവർണർ അറിയിച്ചു

തദ്ദേശീയമായി നിർമ്മിച്ച ട്രെയിൻ സർവീസ് ആരംഭിക്കുമ്പോൾ രാജ്യത്തെ ഏറ്റവും വേഗമേറിയ ട്രെയിനായി മാറും

പൂർണമായി എ സി സൌകര്യമുള്ള ട്രെയിൻ അടുത്ത വർഷം ജനുവരി മുതൽ വാണിജ്യ സർവീസ് ആരംഭിക്കും

അടിസ്ഥാന സൌകര്യങ്ങളുടെ ലഭ്യത വിലയിരുത്താനാണ് സമിതി മുൻഗണന നൽകുന്നത് സംഘം നാളെ ശബരിമലയിലെത്തും നിരീക്ഷണ സമിതിയുടെ ആദ്യ യോഗം ഇന്നലെ ആലുവയിൽ ചേർന്നു

വിവരങ്ങളുമായി സീന ആന്റണി

അത് ഫലപ്രദമായി നടപ്പാക്കുന്നതിന് കൂടുതൽ ഊന്നൽ നൽകൂം ഇത് മൂന്നാം തവണയാണ് കാലാവസ്സ് പൃതിയാനത്തെ സംബന്ധിച്ച സമ്മേളനത്തിന് പ്പോളണ്ട് വേദിയാകുന്നത്

എൻ രക്ഷാസമിതിയ്ുടെ പ്രമേയം ലംഘിച്ച് മിസൈൽ പരീക്ഷണം നടത്തിയെന്ന അമേരിക്കയുടെ ആരോപണം ഇറാൻ തള്ളി ഇറാന്റെ മിസൈൽ പരീക്ഷണത്തെ എതിർത്ത് യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കിയിട്ടില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രാലയം പ്രതികരിച്ചു

താലിബാന്റെ തെക്കൻ മേഖലയുടെ ഷാഡോ ഗവർണറായി അറിയപ്പെടുന്ന അബ്ദുൾ മനാൻ ആണ് വ്യോമാക്രമണത്തിലുണ്ടായ പരിക്കിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് മരിച്ചത് ദക്ഷിണ ഹെൽമന്ദ് പ്രവിശൃയിലാണ് സംഭവം മനാന്റെ മരണം താലിബാൻ സ്ഥിരീകരിച്ചു

ബംഗളുരുവിൽ നിന്ന് വിരുദ് നഗറിലേക്ക് കാറിൽ സഞ്ചരിച്ച യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്

കൂടുതൽ വിവരങ്ങളുമായി സീന ആന്റണി

ബെൽജിയത്തിനുവേണ്ടി അലക്സാണ്ടർ ഹെൻട്രിക് ഗോനാർഡ് സൈമൺ എന്നിവർ ഗോൾ നേടിയപ്പോൾ ഹർമൻ പ്രീത് സിമ്രൻജീത്ത് സിംഗ് എന്നിവർ ഇന്ത്യയ്ക്കുവേണ്ടി ഗോളുകൾ നേടി നിലവിൽ പൂൾ സി വിഭാഗത്തിൽ ഇന്ത്യയാണ് ഒന്നാമത്

മൂന്നാമത്തെയും അവസാനത്തെതുമായ ഇന്ത്യയുടെ മത്സരം ശനിയാഴ്ച കാനഡയ്ക്ക് എതിരെയാണ് ഇന്ന് പൂൾ എ മത്സരങ്ങളിൽ വൈകിട്ട് അഞ്ചു മണിയ്ക്ക് സ്പെയിൻ ഫ്രാൻസിനെയും രാത്രി ഏഴിന് ന്യൂഡിലാൻഡ് അർജന്റീനയെയും നേരിടും

മരണനിരക്കിൽ മുന്നിലെത്തിയ ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി എല്ലാ ആശുപത്രികളിലും മരുന്നുകൾ സംഭരിക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി

പ്രളയാനന്തര പുനർനിർമാണത്തിന്റെ ഭാഗമായി സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ചെങ്ങന്നൂരിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കേരളത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവരിൽ നിന്ന് ലഭിക്കേണ്ട ധനസഹായം കേന്ദ്രം നിഷേധിച്ചതിന് കാരണം വ്യക്തമല്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു

ഡി വി

ഭിന്നശേഷി സൌഹൃദം ലക്ഷ്യമിട്ടുള്ള ബാരിയർ ഫ്രീ കേരള ടൂറിസം പദ്ധതി പാലക്കാട് ജില്ലയിലെ പത്ത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നടപ്പാക്കും

രാജേഷ് എം

കൃഷ്ണൻകുട്ടി ഇടതുമുന്നണി നിയോജകമണ്ഡലം കമ്മറ്റി പാലക്കാട് ചിറ്റൂരിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം